സി

ആർ ഉപയോഗം സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു

എറണാകുളവും ആലപ്പുഴയും കോട്ടയം ജില്ലാ അതിർത്തി അടച്ചു

സി മൊയ്തീൻ

അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം പത്ത് ലക്ഷം പിന്നിട്ടു

പരിശോധനാ ഫലത്തിൽ വ്യാപകമായി വ്യത്യാസം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിർദേശം ചൈനീസ് പരിശോധനാ കിറ്റുകൾക്കായി നൽകിയ ഓർഡറുകളും ഇന്ത്യ റദ്ദാക്കി

രണ്ട് ചൈനീസ് കമ്പനികളിൽ നിന്നായി അഞ്ച് ലക്ഷത്തോളം കിറ്റുകളാണ് ഇന്ത്യ വാങ്ങിയിരുന്നത്

ആറു പേർക്ക് രോഗം സ്ഥിരീകരിച്ച കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ പേർ രോഗബാധിതരായത് ഇടുക്കിയിൽ നാല് പേർക്കും പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു ഇതിൽ അഞ്ചു പേർ തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഒരാൾ വിദേശത്ത് നിന്ന് എത്തിയതാണ് ഒരാൾക്ക് രോഗം ബാധിച്ചതെങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുക കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമാക്കി

പ്രത്യേക അനുമതിയില്ലാത്ത ആരെയും അതിർത്തി കടക്കാനോ എറണാകുളത്തേക്ക് പ്രവേശിക്കാനോ അനുവദിക്കില്ല

കോട്ടയവുമായി അതിർത്തി പങ്കിടുന്ന മറ്റു റോഡുകളിലൂടെ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഗതാഗതം അനുവദിക്കൂ നിത്യോപയോഗസാധനങ്ങളുടെ ചരക്കു നീക്കവും ചികിത്സാ സംബന്ധമായ അത്യാവശ്യ യാത്ര ഉള്ളവരെയും മാത്രമേ കോട്ടയവുമായി അതിർത്തി പങ്കിടുന്ന മറ്റു റോഡുകളിലൂടെ അനുവദിക്കൂ ജോലി ആവശ്യത്തിനായി കോട്ടയം ജില്ലയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന ജോലിക്കാർ ജോലി ചെയ്യുന്ന ജില്ലയിൽ തന്നെ താമസിക്കേണ്ടതാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു മുഖാവരണം ധരിക്കാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശനമായ നിയമനടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ജില്ലാ കലക്ടർ നിർദേശം നൽകി രുക ഇന്നലെ നാലു പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ച് ഇടുക്കി ജില്ലയെ റെഡ് സോണിൽ ഉൾപ്പെടുത്തി നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു

രംഭ കോട്ടയവും ഇടുക്കിയും ചുവപ്പുമേഖലയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രണ്ട് ഐ

എസ് ഓഫീസർമാരെ ഇരു ജില്ലയിലേയ്ക്കും സ്പെഷ്യൽ ഓഫീസർമാരായി നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു കോട്ടയത്ത് കെ

പി അഞ്ചാം ബറ്റാലിയൻ കമാണ്ടന്റ് ആർ വിശ്വനാഥിനെയും ഇടുക്കിയിൽ കെ

പി ഒന്നാം ബറ്റാലിയൻ കമാണ്ടന്റ് വൈഭവ് സക്സേനയേയുമാണ് സ്പെഷ്യൽ ഓഫീസർമാരായി നിയോഗിച്ചത്

മുംബൈയിൽ നിന്ന് യാത്രാ അനുമതിയില്ലാതെ ചരക്ക് വാഹനത്തിലാണ് ഇയാൾ ജില്ലയിൽ എത്തിയത് ഇയാൾ മാത്രമാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ജില്ല യിൽ ചികിത്സയിലുള്ളത്

എടച്ചേരി സ്വദേശികളായ രണ്ട് പേർക്കും ഏറാമല അഴിയൂർ സ്വദേശികളായ ഓരോരുത്തർക്കുമാണ് രോഗം ഭേദമായത്

രുദ ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിന് നോർക്ക വഴി രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും ഇവരെ ഘട്ടംഘട്ടമായി തിരിച്ചു കൊണ്ടുവരുന്നതിന് പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കലക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദേശം നൽകി തിരികെ എത്തുന്ന എല്ലാവരേയും നിരീക്ഷണത്തിലാക്കും

ദുദ ഹാർബറുകളിൽ മത്സ്യകച്ചവടം ഉൾപ്പടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി ജെ

ലേലക്കാരെ ഒഴിവാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സമൂഹ വ്യാപനം തടയുന്നതിനുമാണ് നടപടി വേണ്ടിവന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ദേദ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇഞ്ചി കർഷകരെ തിരികെ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റിന്റെ അനുമതി തേടുമെന്ന് വയനാട് ജില്ലാ കളക്ടർ ഡോ

ഉത്തരവ് ലഭ്യമായാൽ അതാത് ജില്ലാ കളക്ടർമാരുടെ അനുമതിയോടെയാകും പ്രവേശനം അനുവദിക്കുകയെന്നും അവർ പറഞ്ഞു

രംഭ കോവിഡ് പടരുന്നത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് പുറത്തുവിടുന്നത് ശരിയായ വിവരങ്ങളല്ലെന്ന് സംശയം ബലപ്പെടുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

ഗവൺമെന്റ് പലതും മറച്ചുവയ്ക്കുന്നുണ്ടെന്ന സംശയം ബലപ്പെടുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കോട്ടയം മാന്നാനം സ്വദേശി വല്ലത്തറക്കൽ സെബാസ്റ്റ്യനാണ് മരിച്ചത്

രുക സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു